കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവദേക്കർക്കു പുറമേ ഗയാന പ്രസിഡന്റ് ഡോ മുഹമ്മദ് ഇർഫാൻ അലി പപ്പുവ ന്യൂ ഗിനിയ പ്രധാനമന്ത്രി ജെയിംസ് മറാപെ മാലിദ്വീപിലെ പീപ്പിൾസ് മജ്ലിസ് സ്പീക്കർ മുഹമ്മദ് നഷീദ് ഐകൃരാഷ്ട്രസഭയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ അമീന ജെ

നന്ദിപ്രമേയ ചർച്ചുകൾ സഭയിൽപൂർത്തിയായ ശേഷ മാകും പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം കാർഷിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സാധാരണ നടപടികൾ ഒരാഴ്ചയോളം തടസ്സപ്പെട്ട ശേഷമാണ് സഭ നന്ദിപ്രമേയ ചർച്ചകൾ കഴിഞ്ഞ ദിവസം പുന്നരാരംഭിച്ചത്

എന്നാൽ ചിലർക്ക് മാത്രം ഗുണം ചെയ്യുന്ന തരത്തിലുള്ളതാണ് ബില്ലെന്ന് കോൺഗ്രസ് ആരോപിച്ചു ചർച്ച തുടരുകയാണ്

നദികൾ ഉള്ളതിനാലാണ് വേലികൾ കെട്ടാൻ പ്രയാസം നേരിടുന്നതെന്നും അദ്ദേഹം രാജ്യസഭയിൽ വ്യക്തമാക്കി

എന്നാൽ ഇതുവരെ പ്രഖ്യാപനം നടത്താനൂറ്യിട്ടില്ലെന്നും ആരോഗൃ സഹമന്ത്രി അശ്വിനി കുമാർ ചൌബ്പ് ശ്രീ

എയിംസിനായി തിരുവനന്തപുരം കോട്ടയം എറണാകുളം കോഴിക്കോട് ജില്ലകളാണ് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചു സ്ഥലങ്ങൾ

നെല്ല് ശേഖരണം തുടരുകയാണെന്ന് കേന്ദ്ര കൃഷി മന്ത്രാലയം വ്യക്തമാക്കി

സി എം ആർ

ന്യൂസ് ഡെസ്ക്ക് ആകാശവാണി

തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ സുശീൽ ചന്ദ്ര രാജീവ് കുമാർ സെക്രട്ടറി ജനറൽ ഉമേഷ് സിൻഹ എന്നിവരും സംഘത്തിലുണ്ട്

നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും

മേളയുടെ ഭാഗമായുള്ള ചലച്ചിത്ര പ്രദർശനങ്ങൾ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചു

കൃഷ്ണ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത്

സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റിനെ വിചാരണ ചെയ്യുന്നത് നിയമപരമായി നിലനിൽക്കില്ലെന്ന ട്രംപിന്റെ അഭിഭാഷകരുടെ വാദം സെനറ്റ് വോട്ടിനിട്ട് തള്ളി

അമേരിക്കയുടെ ചരിത്രത്തിൽ രണ്ടു ഇംപീച്ച് തവണ ചെയ്യപ്പെടുന്ന ആദ്യ പ്രസിഡന്റാണ് ട്രംപ്

മറ്റ് ജീവികളിൽ നിന്നാവാം മനുഷ്യരിലേക്ക് രോഗം പകർന്നതെന്ന നിഗമനത്തിലാണ് സംഘം എത്തിച്ചേർന്നത് ലാബുകളിൽ നിന്നുമല്ല കൊറോണ വൈറസിന്റെ ഉത്ഭവം എന്നും വിദഗ്ദ്ധ സംഘം ചൂണ്ടിക്കാട്ടി

ചൊവ്വാഴ്ച മ്യാൻമറിൽ പട്ടാള ഭരണകൂടത്തിനെതിരെ നടന്ന വ്യാപക പ്രതിഷേധത്തെ തുടർന്നായിരുന്നു റെയ്ഡ് ഇന്നലെ പ്രതിഷേധക്കാർക്കെതിരെ നടന്ന പോലീസ് വെടിവയ്പിൽ നാല് പേർക്ക് പരിക്കേറ്റു ഒരാൾ ഗുരുതരാവസ്ഥയിലാണ് പ്രതിഷേധത്തിൽ നാല് പോലീസുകാർക്ക് പരിക്കേറ്റതായും പോലീസ് വാഹനങ്ങൾ തകർന്നതായും ഭരണകൂടം അറിയിച്ചു

ഇന്നലെ നടന്ന മത്സരത്തിൽ എടികെ മോഹൻ ബഗാൻ ബംഗളുരു എഫ് സിയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചു

ജൂലൈ ആദ്യ വാരത്തോടെ ഫലം പ്രസിദ്ധീകരിക്കും

ധനകാര്യ സഹമന്ത്രി അനുരാജ് താക്കൂറാണ് ഇക്കാര്യം രാജ്യസഭയിൽ അറിയിച്ചത്